പ്രകടനം നടത്തിയവരെ പൊലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി

പദ്ധതി അന്തിമ ഘട്ടത്തില്ലെന്ന് മന്ത്രി എ സി മൊയ്തീൻ

കനകക്കുന്നിൽ ഇന്ന് തുടക്കം മുഖ്യമന്ത്രി വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും കൊച്ചി പുതുവൈപ്പിൻ കൊച്ചി പുതുവൈപ്പിനിൽ എൽ

ജി ടെർമിനലിലേക്ക് പ്രകടനം നടത്തിയ സ്ത്രീകൾ അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി

അഞ്ചു കൊല്ലം കൊണ്ട് അൻപതിനായിരം കോടി രൂപയുടെ പദ്ധതികൾ നടപ്പാക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് കേരള നിർമ്മിതി പ്രദർശനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ വികസന മുന്നേറ്റത്തിന്റെ ചാലകശക്തിയാണ് കിഫ്ബിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു

ഒട്ടേറെ സപ്നു പ്രദ്ധതികളാണ് കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമാകുന്നതെന്ന് മുഖ്യമ്ന്ത്രീ പറഞ്ഞു

വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടപ്പിലാക്കുന്നതിന് കോസ്റ്റൽ ഡെവലപ്മെന്റ് ബോർഡ് എന്ന പേരിൽ ബോർഡുണ്ടാക്കി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു

സുനിൽകുമാർ സമ്മേളനം ഒളിമ്പിക്സ് മെഡൽ ലക്ഷ്യമാക്കിയുള്ള പദ്ധതികളാണ് സംസ്ഥാന സ്പോർട്സ് വകുപ്പ് ആസൂത്രണം ചെയ്യുന്നതെന്ന് മന്ത്രി വി

സുനിൽകുമാർ ദേശീയ സ്കൂൾ കായിക മേളയിൽ നാല് സ്വർണം നേടിയ ആൻസി സോജൻ ഡിസ്കസ് ത്രോയിൽ പങ്കെടുത്ത പി

അതുല്യ പരിശീലകൻ വി

സനോജ് എന്നിവർക്ക് നാട്ടികയിൽ നൽകിയ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

പരിഷാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ശ്രീ

രാജേന്ദ്രൻ എം എൽ എ ്നിർവ്വഹിച്ചു മൂന്നാർ ടൌണിലൂടെ ഒഴുകുന്ന മുതിരപ്പുഴയാറ്റീന്ന്റെ ശുചീകരണ പ്രവർത്തനമാണ് പദ്ധതിയുടെ പ്രാരംഭഘ്ട്ടത്തിൽ നടത്തിയത് ജനപ്രതിനിധികൾ കുടുംബശ്രീ തൊഴിലുറപ്പ് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുടെ സഹകരണത്തോടെ മുതിരപ്പുഴയാറിലെ മാലിനൃങ്ങൾ നീക്കം ചെയ്തു വഴിയോര കച്ചവടം പുനരധിവാസം വിനോദസഞ്ചാര കേന്ദ്രമായ വാഗമണിലെ വഴിയൊര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന് അടിയന്തിര നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു യോഗത്തിൽ ഇ

ബിജിമോൾ എം എൽ എ സംബന്ധിച്ചു

പി കേരള സംസ്ഥാന പ്രസിഡന്റ് തോമസ് ചാണ്ടി എം എൽ എയുടെ ഭൌതിക ശരീരം തിങ്കളാഴ്ച ജന്മദേശമായ കുട്ടനാട്ടിലേയ്ക്ക് കൊണ്ടുപോകും തുടർന്ന് ആലപ്പുഴ ടൌൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും

ഇന്നലെയാണ് തോമസ് ചാി കൊച്ചിയിൽ അന്തരിച്ചത് ഇടുക്കി ഇൻട്രോ അവധിക്കാലമായതോടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജലസംഭരണിയായ ഇടുക്കി ചെമുത്തോണി അണക്കെട്ടുകൾ കാണാനെത്തുന്ന സഞ്ചാരികളുടെ തിര്ക്ക് വർദ്ധിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

ഒരു ലക്ഷത്തിലേറെ സോളാർ കണ്ണടകൾ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്തെങ്കിലും ആവശ്യക്കാർ ഏറിയതോടെയാണ് കണ്ണട വീണ്ടും നിർമിക്കുന്നത് ലൈബ്രറികളും പരിഷത്ത് യൂണിറ്റുകളും കേന്ദ്രീകരിച്ചാണ് കണ്ണടകൾ വിതരണം ചെയ്തത്

എം

വൈ ലൈഫ് രണ്ടാട്ഘട്ട പദ്ധതി പ്രകാരം നിർമ്മിച്ച വീടുകളുടെ താക്കോൽദാനവും നിന്നിവൃഹിക്കുകയായിരുന്നു മന്ത്രി

മന്ത്രി കെ കെ ശൈലജ അധ്യക്ഷയാകും

ഒരാഴ്ചത്തെ പുഷ്പോത്സവത്തിൽ വിവിധയിനം പൂക്കൾ അണിനിരത്തും

കാർഷിക പ്രദർശനമേള ഔഷധ സസ്യപ്രദർശം ഉൽപ്പന്ന വിപണനമേള പാരമ്പര്യ പ്രകൃതി ചികിത്സാ കൃാമ്പ് ഗോത്ര ഭക്ഷ്യമേള എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്

പുഷ്പാലങ്കാര വിദഗ്ദ്ധർ ഒരുക്കുന്ന സബർമതി ആശ്രമത്തിന്റെയും ജഡായു പാർക്കിന്റെയും മാതൃകയിലുള്ള പുഷ്പാലംകൃത രൂപങ്ങളാണ് മറ്റൊരു സവിശേഷത

പ്രദർശനത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി പുഷ്പറാണി പുഷ്പരാജ് മത്സരങ്ങളും ഉണ്ടാകും

ഡി വി സ്കൂൾ ഗ്രൌണ്ടിലാണ് പ്രദർശനം നടക്കുന്നത് ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി കൃഷി വകുപ്പ് എസ്

ജനത്തിരക്കും ഗതാഗത കുരുക്കുമാണ് അനുഭവപ്പെടുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശ്പ്പാർ ആലപ്പുഴ പ്രതിനിധി ആർ രവികുമാർ

കൊല്ലം ബീച്ചിൽ വൈകിട്ട് മന്ത്രി ജെ

മത്സ്യത്തൊഴിലാളി ടീമുകൾ പങ്കെടുക്കുന്ന ഫുട്ബോൾ വോളിബോൾ മത്സരങ്ങൾ ബീച്ച് ഗെയിംസിന്റെ ഭാഗമായി നടക്കും

വ്യാജമദ്യം സ്പിരിറ്റ് മയക്കുമരുന്ന് എന്നിവയുടെ വിപണന സാധ്യത കണക്കിലെടുത്താണ് കർശന പരിശോധ നടത്തുന്നത്

ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു പുരസ്ക്കാരങ്ങൾ സമ്മാനിക്കും കായികമേള കിരീടം കോഴിക്കോട് സർവകലാശാല കായികമേളയിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിന് കിരീടം